ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉല്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി

യോഗൃതാ മത്സരത്തിന് അർഹത നേടി എലിമിനേറ്ററിൽ ഹൈദരാബാദിനെ രണ്ടു വിക്കറ്റിന് തോല്പിച്ചു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

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ പുരുളിയ ബാങ്കുറ ഉത്തർപ്രദേശിലെ അസംഗഡ് ജാൻപൂർ പ്രയാഗ്രാജ് എന്നിവിടങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളെ അഭ്യിസംബോധന ചെയ്യും ഉത്തർപ്രദേശിലെ ശ്രാവസ്തി ദുമാരിയഗുഞ്ച് ് ്സന്ത് കബീർ നഗർ സുൽത്താൻ പൂർ എന്നിവിടങ്ങളിൽ ബ്രിിട്ട്ജ്പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഇന്ന് പ്രചാരണം നടത്തും ക്ടോൺഗ്ഗ്സ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഡെൽഹി ഹരിയാന മദ്ധ്യപ്രദ്ദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് പ്രചാരണത്തിൽ പങ്കെടുക്കും കോൺഗ്രസ് ജന്റൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വദ്ര ഉത്തർപ്രദേശിൽ തെരഞ്ഞെട്ടുപ്പ് റാലികളിലും റോഡ് ഷോയിലും പങ്കെടുക്കും സമാജ്വാദിപ്പാർട്ടി പ്രസിഡന്റ് അഖിലേഷ് യാദ്വ ദുമാരിയാഗഞ്ച് മണ്ഡലത്തിലെ സിദ്ധാർത്ഥ് നഗറിൽ പ്രചാരണം നടത്തും

കാർഷിക വ്യാപാര വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യും ഇന്ത്യൻ നിർമ്മിത ഉല്പന്നങ്ങൾക്കും കാർഷിക ഉല്പന്നങ്ങൾക്കും ചൈനയിലെ വിപണികൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച

അഞ്ചു തോക്കുകളും കണ്ടെടുത്തു പദുവാ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വനത്തിൽ പ്രത്യേക സുരക്ഷാ സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് മാവോയിസ്റ്റുകൾ വെടിയുതിർത്തതിനെ തുടർന്നാണ് സേന തിരിച്ചടിച്ചതെന്ന് പോലീസ് വൃക്തമാക്കി

ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ കോടതിയാണ് നീരവിന് ജാമ്യം നിഷേധിച്ചത്

വെങ്കയ്യ നായിഡു ഇന്ന് വിയറ്റ്നാമിലേക്ക് യാത്ര തിരിക്കും വിശദാംശങ്ങളുമായി കരോൾ

സുസ്ഥിര സമൂഹത്തിനുവേണ്ടിയുള്ള ആഗോളനേതൃത്ത്വത്തിനും പങ്കാളിത്ത ഉത്തരവാദിത്വത്തിനും ബുദ്ധിസ്റ്റ് സ്ഥമീപനം എന്ന വിഷയത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യപ്രഭാഷണ്ടു നടത്തും വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ ഹാന്യോയിൽ ഇന്ത്യൻ സ്ഥാനപതി ഒരുക്കുന്ന സ്വീകരണ പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന്റ് ച്ചെയ്യും സന്ദർശന വേളയിലെ ഉന്നതതല ചർച്ചകളിൽ വ്യാപ്ട്ട്രൂ പ്പാണിജ്യ നിക്ഷേപ കാര്യങ്ങളിൽ വിയറ്റ്നാം നേതാക്കളുമായി ്യക്കീ

വിയറ്റ്നാം വൈസ് പ്രസീഡ്ഡ്റ്റുമായും ഉപരാഷ്ട്രപതി പ്രതിനിധിതല ചർച്ച നടത്തും ന്യൂസ് ഡസ്ക് ആകാശവാണി

വിമാനം പുറപ്പെടുന്നതിനു മുൻപ് ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നതായി എയർലൈൻന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി

മുംബൈ പ്രത്യേക കോടതിയിൽ സക്കീർ നായിക്കിനെതിരെ സമർപ്പിച്ച എഫ് ഐ ആറിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്

ഇരുമ്പുരുക്ക് അലുമിനിയം ചെമ്പ് വ്യവസായം എന്നീ മേഖലകളിലാണ് ഡൊണാൾഡ് ട്രംപ് പുതുതായി ഉപരോധം ഏർപ്പെടുത്തിയത് ആണവായുധങ്ങളും ഭൂഖ്പണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളും ഇറാൻ സ്വന്തമാക്കുന്നത് രൂട്ട്യുകയാണ് ലക്ഷ്യം ഇറാൻ ആണവകരാറിൽ നിന്ന് അമേരിക്കു് പിൻമാറിയതിനെ തുടർന്ന് ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങളുമ്പായാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത് പെട്രോളിയം പെട്ട്രോര്കെമിക്കൽസ് മെറ്റൽ എന്നിവയുടെ കയറ്റുമതിയിലും ഉപരോധം തുടരുകയാണ് ഉപരോധനത്തെ മറികടക്കാൻ ശ്രമിക്കുന്ന അജ്യങ്ങൾക്ക് യു എസ് കടുത്ത മുന്നറിയിപ്പ് നല്കിയിട്ടുണ്ട്

എസ് വ്യക്തമാക്കി മതനിന്ദാ കേസിൽ പാകിസ്ഥാൻ തടവിൽ നിന്ന് മോചിതയായി കാനഡയിലെത്തിയ ക്രൈസ്തവ യുവതി ആസിയാബീബിയെ സ്വാഗതം ചെയ്യുന്നതായി അമേരിക്ക അറിയിച്ചു വധശിക്ഷയിൽ നിന്നാണ് ആസിയാ ബീബി മോചനം നേടി കാനഡയിലെ കുടുംബത്തോടൊപ്പം എത്തിയത് ആസിയാബീബി സുരക്ഷിതയായി സ്വന്തം കൂടുംബത്തിൽ എത്തിയ വാർത്ത സ്വാഗതാർഹമെന്ന് യു

എസ് പൌരൻ കുറ്റസമ്മതം നടത്തി

ക്രിക്കറ്റിൽ വിശാഖപ്പിട്ടുണത്ത് ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ്ട് ഹ്ലൈദരാബാദിനെതിരെ ഡൽഹി ക്യാപ്പിറ്റൽസിന് രണ്ടു വിക്കുറ്റിന്റെ ഉജ്ജല വിജയം

വിജയസാധ്യതകൾ മാറിമറിഞ്ഞ മത്സരത്തിൽ ഡൽഹിയ്ക്ക് രക്ഷയായത് ഋഷഭ് പന്ത് പ്രിഥി ഷാ എന്നിവരുടെ മികച്ച പ്രകടനം

അഞ്ച് സിക്സറുകളും രണ്ട് ഫോറുകളും അടക്കം ഋഷഭ് പന്ത് അവസാന ഓവറുകളിൽ നടത്തിയ വെടിക്കെട്ടാണ് കളി ഡൽഹിക്ക് അനുകൂലമാക്കിയത് പന്ത് തന്നെയാണ് കളിയിലെ കേമൻ ഹൈദരാബാദിനായി ഇറങ്ങിയ മലയാളി ബൌളർ ബേസിൽ തമ്പിക്ക് വിക്കറ്റൊന്നും നേടിയില്ല

ഡൽഹിയ്ക്കായി കീമേ പോൾ മൂന്ന് വിക്കറ്റും ഇഷാന്ത് ശർമ്മ രണ്ട് വിക്കറ്റും നേടി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്നലെ പെർത്തിൽ നടന്ന മത്സരത്തിൽ ഡബ്യു

ഇതോടെ അടുത്ത മാസം രണ്ടിമ്പ് മാട്ട്ഡിഡിൽ നടക്കുന്ന ഫൈനൽ ഇംഗ്ലീഷ് ഫൈനലായി മാറി

ജി പിയ്ക്ക് നിർദ്ദേശം നല്കി

തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയെ പൂരങ്ങളിൽ നിന്ന് വിലക്കിയതിൽ പ്രതിഷേധിച്ച് എല്ലാ ആനകളെയും ഉത്സവങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ ഉടമകളുടെ സംഘടന തീരുമാനിച്ചതോടെയാണ് പ്രതിസന്ധിയിലായത്